ബി ഐ

ഹൈക്കോടതി പോലീസിന് എതിരെ രൂക്ഷ വിമർശനം

പിരിഞ്ഞു

ക്രമവത്ക്കരിക്കാൻ ഉത്തരവായി

നേരിടാൻ നടപടി

ഷുഹൈബ് കൊല്ലപ്പെട്ട കേസ് സി ബി ഐ അന്വേഷിക്കാൻ ഹൈക്കോടതി് ഉത്തരവിട്ടു സംസ്ഥാന ഗവൺമെന്റ് ഉയർത്തിയ എതിർവാദങ്ങൾ ഹൈക്കോടതി തള്ളി അന്വേഷണം സി ബി ഐ യെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷുഹൈബിന്റെ മാതാപിതാക്കളായ സി

മുഹമ്മദ് എസ്

റസിയ എന്നിവർ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി പോലീസിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങളാണ് നടത്തിയത്

ബി ഐ യുടെ തിരുവനന്തപുരം യൂണിറ്റായിരിക്കും അന്വേഷണം നടത്തുക സംസ്ഥാന ഗവൺമെന്റ് സി ബി ഐ യെ സഹായിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കൊലപാതകം നടന്ന് ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം സി ബി ഐ യെ ഏൽപ്പിച്ചിരിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയ കോടതി യാതൊരു ഒഴികഴിവുകൾക്കും ഇനി സ്ഥാനമില്ലെന്ന് പ്രത്യേക ഓർമ്മിപ്പിച്ചു

രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തുള്ള സൌഹൃദം എന്തുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാവുന്നില്ലെന്നതിൽ ആശങ്കയുണ്ട് ഫയലുകൾ ഉടൻ സി ബി ഐ

ബി ഐ യ്ക്ക് ആവശ്യമെങ്കിൽ അന്വേഷണം ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നും കോടതി വിശദമാക്കി കേസിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പ്രതികൾക്ക് ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്ന വാദത്തിൽ കഴമ്പുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സി ബി ഐ

ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി നിലനിൽക്കില്ലെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ വാദം കേസ് പരിഗണിച്ച ജസ്റ്റിസ് കമാൽപാഷ തള്ളി

നേരത്തെ നിലവിലെ അന്വേഷണാകാതണകക്ക കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഇനി ഒന്നും ചെയ്യേണ്ടെന്ന കേസിന് പിന്നിലുള്ളവർ വ്യക്തമാക്കിയിരുന്നു തുടർച്ചയായി കൈകഴുകുകയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഗൂഢാലോചന പുറത്തുവരാറില്ലെന്ന നിരീക്ഷണവും ഹൈക്കോടതി നടത്തി

ബി ഐ

പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് കേസിൽ യു എ

എ നിയമം ചുമത്താൻ ആവശ്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ചോദ്യോത്തര വേളയിൽ അദ്ദേഹം പറഞ്ഞു

ട്ടടടടടട ഹസ്സൻ നീതിനിർവ്വഹണത്തെ പരിപൂർണ്ണമായി രാഷ്ട്രീയവത്ക്കരിച്ച മുഖ്യമന്ത്രി പിണറായി പിജയൻ രാജിവയ്ക്കണമെന്ന് കെ

സി

അധ്യക്ഷൻ എം

ഹസൻ ആവശ്യപ്പെട്ടു

ബി ഐ നിലപാട് സ്വാഗതാർഹമാണെന്നും സി ബി ഐ അന്വേഷണം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ച ഇടത് ഗവൺമെന്റ് ജനങ്ങളോട് മറുപടി പറയണമെന്നും ബി ജെ

സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു

സതീശൻ നടത്തിയ പരാമർശത്തെച്ചൊല്ലി നിയമസഭയിൽ ബഹളം

അനുമതി പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നതിനിടെ ശ്രീ സതീശൻ നടത്തിയ പരാമർശമാണ് സഭയിൽ രുക്ഷമായ ബഹളത്തിനിടയാക്കിയത് പരാമർശം നീക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് അറിയിച്ചു സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി വിശാലമായ പൊതുതാത്പര്യം മാനിച്ചാണ് കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

രണ്ട് ഉത്തരവുകളും ഗസറ്റിലും തദ്ദേശ വകുപ്പിന്റെ വെബ് സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്

വാണിജ്യ കെട്ടിടങ്ങൾക്കും ഇതുമൂലം ക്രമവത്ക്കരിക്കാനാകും

വരൾച്ചയും കുടിവെള്ള ക്ഷാമവും ജില്ലയെ ബാധിച്ചു തുടങ്ങി

വേനൽ ശക്തിയാർജ്ജിച്ചതോടെ ചില ഡിവിഷനുകളിൽ പാചകവശ്യത്തിന് പോലും ശുദ്ധജലം കിട്ടാതെ ജനങ്ങൾ വലയുന്ന അവസ്ഥയാണെന്ന് ഭൂരിപക്ഷം കൌൺസിലർമാരും ഉയർത്തിയ പരാതി സാഹചരൃത്തിലാണ് തീരുമാനം കുടിവെള്ള ക്ഷാമം ഏറ്റവും രൂക്ഷമായ ശക്തികുളങ്ങര അയത്തിൽ ഡിവിഷനുകളിലുൾപ്പടെ ജലവിതരണം ഉറപ്പാക്കാനും വാട്ടർ അതോറിറ്റിയുടെ അടിയന്തരയോഗം ്ചേരാനും യോഗം തീരുമാനിച്ചു

കണ്ണൂർ മലപ്പുറം വയനാട് എന്നിവ വിശദാംശങ്ങളുമായി

വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ ഗ്രാമീണ വികസന വകുപ്പും സംയുക്തമായി പദ്ധതിക്ക് നേതൃത്വം നൽകണമന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്

അവർക്ക് അതിന് വേണ്ട സാങ്കേതിക സൌകര്യങ്ങൾ ഉറപ്പാക്കും

കേസിൽ ഇരുവരും വിചാരണ നേരിടണമെന്ന് കോടതി ഉത്തരവിട്ടു അതേസമയം കേസിന്റെ പ്രതിപട്ടികയിൽ നിന്നും ഫാദർ ജോസ് പുതൃക്കയിലിനെ കോടതി ഒഴിവാക്കി ഏഴ് വർഷം മുമ്പ് മൂവരും നൽകിയ വിടുതൽ ഹർജിയിലാണ് ഇന്ന് വിധിയുണ്ടായത് ട്ടടടടടടട രക്തക്കുളി വിതുര വിദ്വാരി വൈദ്യനാഥ ക്ഷേത്രത്തിൽ മനുഷ്യരക്തം കൊണ്ട് കാളിയെ കുളിപ്പിക്കുന്ന ചടങ്ങ് തടയാൻ ദേവസ്വം മന്ത്രി ജില്ലാ പോലീസ് മേധാവിക്ക് നിർദേശം നൽകി

ഇളമ്പ പൂവണത്ത്മൂട് കോടാലികോണം ബിനു നിവാസിൽ ബിനുവിന്റെ ഭാര്യ സുനിതയാണ് മരണപ്പെട്ടത്

കുട്ടികളും കടിയേറ്റവരിൽപ്പെടും ഇന്ന് രാവിലെ പയ്യ ന്നൂർ അന്നൂർ പുതിയകാവ് കണ്ടോത്ത് കോത്തായിമു ക്ക് എന്നിവിടങ്ങളിലാണ് പട്ടികളുടെ ആക്രമമുണ്ടായത് പരിക്കേറ്റവരെ വിവിധ ആസ്പത്രികളിൽ പ്രവേശിപ്പിച്ചു ടടടടടടട ഡിജിപി സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹറ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി പല് ജില്ലകളിലും തങ്ങൾക്ക് എതിരെ അതിക്രമങ്ങളും സ്വൈരജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഇടപെടലുകളും പലഭാഗത്തുനിന്നും ഉണ്ടാകുന്നുവെന്നും എന്നാൽ അവയ്ക്കെതിരെ പോലീസ് നിയമപരമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ പരാതിപ്പെട്ട സംസ്ഥാന പോലീസ് സാഹചര്യത്തിലാണ് മേധാവിയുടെ ഉത്തരവ്

സി